തൽക്കാലം എൻഡിഎ സഖ്യം വിടില്ല

നാരി ശക്തി പുരസ്കാരങ്ങൾ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് സമ്മാനിക്കും

ബാലൻ കൺവീനറായി മന്ത്രിസഭാ ഉപസമിതി രൂപീകരിക്കും ദേശീയ പോഷകാഹാര മിഷന്റെ ഒന്നാംഘട്ടത്തിന് ഇന്ന് തുട ക്കം കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാർക്കും പെൻഷൻകാർക്കും രണ്ട് ശതമാനം ക്ഷാമബത്ത അനുവദിച്ചു

ങ്ങ ൽ തെലുങ്ക് ദേശം പാർട്ടി കേന്ദ്രമന്ത്രിസഭയിലെ രണ്ട് മന്ത്രിമാരെ പിൻവലിക്കാൻ തീരുമാനിച്ചു കേന്ദ്രമന്ത്രിമാരായ അശോക് ഗണ പത് രാജു വൈ

ചൌധരി എന്നിവരോട് ഇന്ന് രാജിക്കത്ത് കൈമാ റാൻ ആവശ്യപ്പെട്ടതായി ആന്ധ്രാമുഖ്യമന്ത്രിയും പാർട്ടി നേതാവു മായ ചന്ദ്രബാബു നായിഡു ന്യൂഡൽഹിയിൽ അറിയിച്ചു ആന്ധ്രക്ക് പ്രത്യേക സംസ്ഥാന പദവി അടക്കം ആവശൃങ്ങൾ കേന്ദ്രം അനുവ ദിക്കാത്തതിനെ തുടർന്നാണ് രാജിയെന്ന് നായിഡു പറഞ്ഞു എന്നാൽ എൻഡിഎ സഖ്യം തൽക്കാലം ഉപേക്ഷിക്കില്ലെന്നും അദ്ദേഹം അറിയിച്ചു

ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനം സാമ്പത്തിക സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ സ്ത്രീകളെ കൈപിടിച്ച് ഉയർത്താനും സ്ത്രീസമൂഹത്തിന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും അവരുടെ ഉന്ന തിക്കായി കർമ്മ പരിപാടികൾ ആവിഷ്ക്കരിച്ച് നടപ്പാക്കാനും ലക്ഷ്യ മിട്ടാണ് ലോക വനിതാ ദിനം ആചരിക്കുന്നത്

വികസനത്തിനായി സമ്മർദ്ദം അത് യാഥാർത്ഥ്യമാക്കുക എന്നി വയാണ് ഇത്തവണത്തെ ദിനാചരണ സന്ദേശം അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തോടനുബന്ധിച്ച് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വനിതകൾക്കും സംഘടനകൾക്കും രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഇന്ന് നാരി ശക്തി പുരസ്ക്കാർ സമ്മാ നിക്കും

കേരളത്തിൽ നിന്ന് കോളജ് അധ്യാ പിക ഡോ

സുനിൽ ശാസ്ത്രജ്ഞ ഡോ

ലിസിമോൾ ചുമർചിത്രകാരി ശൃാമളകുമാരി എന്നിവർ അവാർഡ് ജേതാക്കളുടെ പട്ടികയിലുണ്ട്

അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തിന്റെ തലേനാൾ ആകാശവാ ണിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി

ഇതോടൊപ്പം ഒരു വർഷം നീളുന്ന ജെൻഡർ സാക്ഷരതാ യജ്ഞത്തിനും തുടക്കം കുറിക്കും

ഡിജിപിയുടെ ഉത്തരവനുസരിച്ചാണ് നടപടി കോഴിക്കോട് ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ സീതാലയം പദ്ധതിയുടെ ഭാഗമായി വനിതാ ദിനാഘോഷവും ഫെർട്ടി ലിറ്റി സെന്റർ കുടുംബ സംഗമവും സംഘടിപ്പിച്ചിട്ടുണ്ട് വനിതാ ദിനത്തോടനുബന്ധിച്ച് കോട്ടയം അതിരൂപതയുടെ സാമൂഹൃ ക്ഷേമ വിഭാഗമായ കോട്ടയം സോഷ്യൽ സർവ്വീസ് സൊസൈറ്റി സ്ത്രീ ശാക്തീകരണ സെമിനാറും വനിതാ ദിന പൊതുസമ്മേളനവും സംഘടിപ്പിക്കും മാതൃകാ വനിതാ പ്രവർത്ത കരെ ആദരിക്കുന്ന ചടങ്ങും ഇതിന്റെ ഭാഗമായി നടത്തും മാഹി സ്വാതന്ത്രൃ സമര സ്മൃതി മണ്ഡപത്തിൽ വൈകീട്ട് മൺമ റഞ്ഞ വനിതാ സ്വാതന്ത്രൃ സേനാനികളെ അനുസ്മരിക്കുന്ന ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുണ്ട് പുതുച്ചേരി പ്രദേശ് മാഹി വിശ്വകർമ്മ സംഘ

സ്ത്രീ പുരുഷ സമത്വമല്ല സർവ്വ ലിംഗ സമത്വമാണ് വേണ്ട തെന്ന് പ്രശസ്ത ഭിന്നലിംഗ എഴുത്തുകാരി കൽക്കി സുബ്രഹ്മണ്യം അഭിപ്രായപ്പെട്ടു ഭിന്നലിംഗക്കാരോട് നീതി പുലർത്തുന്നതിൽ കേരളം തമിഴ്നാടിന്റെ ബഹുദൂരം പിന്നിലാണെന്നും അവർ പറഞ്ഞു

കൊച്ചിയിൽ കൃതി സാഹിത്യ വിജ്ഞാനോത്സവ ത്തിൽ സംസാരിക്കുകയായിരുന്നു കൽക്കി സുബ്രഹ്മണൃം എൽഡിഎഫ് മന്ത്രിസഭയുടെ രണ്ടാം വാർഷികാഘോഷ പരിപാടി തയാറാക്കാൻ മന്ത്രി എ

ബാലൻ കൺവീനറായി മന്ത്രിസഭാ ഉപ സമിതി രൂപീകരിക്കാൻ ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗം തീരു മാനിച്ചു

തൃശൂർ ചിമ്മിനി ഡാമിന്റെ നിർമ്മാണത്തിന് കുടിയൊഴിപ്പിച്ച ആദി വാസികളെ പുനരധിവസിപ്പിക്കാൻ ഏഴര ഏക്കർ ഭൂമി വാങ്ങുന്നതിന് തൃശൂർ ജില്ലാ കലക്ടറെ ചുമതലപ്പെടുത്തും

കേരളത്തിലെ കണ്ണൂർ മലപ്പൂറം വയനാട് ജില്ലകളെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്

ജനുവരി ഒന്നു മുതൽ മുൻകാല പ്രാബല്യത്തോടെ യായിരിക്കും ക്ഷാമ ബത്ത അനുവദിക്കുന്നത്

നാഗാലാന്റിൽ എൻ ഡി പി പി നേതാവ് നെയ്ഫ്യൂ റിയോ ഇന്ന് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും ബിജെപിയും എൻ ഡി പി പിയും ചേർന്ന് രൂപീകരിച്ച പീപ്പിൾസ് ഡെമോക്രാറ്റിക് അലൈൻസ് മന്ത്രിസഭയാണ് ഇന്ന് അധികാർമേൽക്കുന്നത് കൊഹിമയിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കേന്ദ്രമന്ത്രി മാരും ബിജെപി അധ്യക്ഷനും പ്രമുഖ ബിജെപി നേതാക്കളും പങ്കെ ടുക്കും ഷുഹൈബ് വധക്കേസിലെ സി ബി ഐ അന്വേഷണം സ്വാഗതാർഹമാണെന്ന് മുസ്തിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ

എ മജീദ് പറഞ്ഞു ഏത് അനേഷണത്തിനും തയ്യാറാണെന്ന് പറഞ്ഞ സി

എം പിന്നീട് പിറകോട്ട് പോയതും സി ബി ഐ അന്വേഷണത്തെ എതിർത്തതും സംശയാസ്പദമാണെന്ന് അദ്ദേഹം കോഴിക്കോട്ട് അഭിപ്രായപ്പെട്ടു

ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ആദ്യ സെമിയുടെ ഒന്നാം പാദത്തിൽ ബംഗളൂരു എഫ്സി പൂണെ എഫ്സി മത്സരം ഗോൾ രഹിത സമനിലയിൽ അവസാനിച്ചു ഞായറാഴ്ച്ച ബംഗളൂരുവിലാണ് രണ്ടാം പാദ സെമി ഐ ലീഗ് ഫുട്ബോളിലെ അവസാന മത്സരത്തിൽ കോഴിക്കോട്ട് ഇന്ന് ഗോകുലം കേരള എഫ്സി കൊൽക്കത്ത മോഹൻബഗാനെ നേരിടും ഉച്ചകഴിഞ്ഞ് മൂന്നിന് കോർപ്പറേഷൻ ഇഎംഎസ് സ്റ്റേഡി യത്തിലാണ് മത്സരം

പി അറിയിച്ചു

ദേശീയ റബ്ബർ നയം വൈകാതെ പ്രഖ്യാപിക്കുമെന്ന് കേന്ദ്രമന്ത്രി ഡോ

അവരുടെ നിർദേശങ്ങൾ സംസ്ഥാന ഗവൺമെന്റുകളുമായി ചർച്ച ചെയ്ത ശേഷമായിരിക്കും റബ്ബർ നയം തയാറാക്കുകയെന്ന് ജോയ്സ് ജോർജ് എംപിയുടെ ചോദ്യത്തിന് മന്ത്രി മറുപടി നൽകി

ശാസ്ത്രയാന്റെ ഭാഗമായി ഇന്നും നാളെയും സൌജന്യ മാനസികാരോഗ്യ ക്യാമ്പ് നടത്തുന്നുണ്ട് പ്രദർശനം നാളെ സമാപിക്കും സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന പ്രാദേശിക രാജ്യാന്തര ചലച്ചിത്ര മേള നാളെ കോഴിക്കോട്ട് തുടങ്ങും

ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും വൈകീട്ട് കൈരളി തിയേറ്ററിലാണ് ഉദ്ഘാടന ചടങ്ങ്

പൊന്തൻപുഴ വനഭൂമി സ്ഥകാര്യ വൃക്തികൾക്ക് കൈവശപ്പെടു ത്താൻ കൂട്ടുനിന്ന സംസ്ഥാന ഗവൺമെന്റിനെതിരെ ശക്തമായി ഇട പെടുമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖ രൻ പറഞ്ഞു പൊന്തൻപുഴ വനമേഖല സന്ദർശിച്ച ശേഷം പത്ത നംതിട്ട പെരുമ്പട്ടിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽക്കണ്ടാണ് ബിജെപി ഇന്നും നാളെയും യാത്ര സംഘടിപ്പിച്ചത്

ഹോളി ആഘോഷത്തിനിടെയുണ്ടായ സംഘർഷത്തെ തുടർന്ന് കണ്ണൂർ ഗവൺമെന്റ് പോളിടെക്നിക്ക് കോളേജ് അനിശ്ചിത കാല ത്തേക്ക് അടച്ചു ഇന്നലെ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ ക്ലാസിൽ കയറി പെൺകുട്ടികൾ ഉൾപ്പെടെ വിദ്യാർത്ഥികളുടെയും അധ്യാപ കരുടെയും ദേഹത്ത് ചായം പൂശാൻ ശ്രമിച്ചതാണ് സംഘർഷത്തി ൽ കലാശിച്ചത്

പാലക്കാട് പെരുവെമ്പിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് രണ്ടു പേർ മരിച്ചു പെരുവെമ്പ് ഏറാത്ത് വീട്ടിൽ വിഷ്ണു അട്ടപ്പാടി കീഴ്പ്പതി ശെൽവരാജ് എന്നിവരാണ് മരിച്ചത് രണ്ടു പേർക്ക് പരിക്കേറ്റു ഇന്നലെ രാത്രി ഒൻപത് മണിയോടെ പനംകുറ്റി റെയിൽവെ മേൽപ്പാ ലത്തിന് സമീപമായിരുന്നു അപകടം

ഒറ്റപ്പാലം നഗരസഭയുടെ ഭാരതപ്പുഴ സംരക്ഷണ പദ്ധതിക്ക് തുട ക്കമായി പുഴ വീണ്ടെടുക്കലിന്റെ ഭാഗമായി മായന്നൂർപാലം പരി സരം മുതൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു പദ്ധതിയുടെ ഭാഗമായി മണലെടുത്തുണ്ടായ കുഴിയും നികത്തും ഇടുക്കി പാമ്പാടുംപാറക്ക് സമീപം പത്തനപ്പാറയിൽ കാട്ടുതീ പടർന്ന് പത്ത് ഏക്കറോളം ഗവൺമെന്റ് ഭൂമി കത്തി നശിച്ചു ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തീയണച്ചു